മഹാരാഷ്ട്രയിൽ ബി ജെ

തിരഞ്ഞെടുക്കും

വാളയാർ കേസിൽ പ്രതികള്ള് വെറുതെ വിട്ട വിധിയ്ക്കെതിരെ ന് കേരള ഗവൺമെന്റ് ഹൈക്ക്കോടതിയിൽ അപ്പീൽ നൽകും

പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ നിർദ്ദേശത്തിന് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം

സെമിഫൈനലിൽ

ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ സന്ദർശനത്തിൽ ചർച്ചാ വിഷയമായി

സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി നയതന്ത്ര സഹകരണ കൌൺസിൽ കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൌദി കിരീടാവകാശി മൊഹമ്മദ് ബിൻ സൽമാനും ഒപ്പുവെച്ചു ഇരുരാജ്യങ്ങൾക്കും താൽപര്യമുള്ള വിവിധ മേഖലകളിലും ഭീകരവാദ വിരുദ്ധ നീക്കങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള നയതന്ത്ര സഹകരണ കൌൺസിൽ രൂപീകരണത്തിനും ധാരണയായി

ദ്ദേശീയ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ജലപാതകളുടെ സംരക്ഷണത്തിന് പ്പേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും അറിയിച്ചു

സൌദി അറേബ്യയിലെ ഉന്നത നേതാക്കളുമായി നടത്തിയ ചർച്ചകൾ ഗുണപരമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

റിയാദിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ആഗോളമായി നിക്ഷേപം നടത്താൻ ആരംഭിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഊർജ്ജോത്പാദന മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി

ഇതിനിടെ ബിജെപി നിയമസഭാ കക്ഷി നേതാവിനെ ഇന്ന് മുംബൈയിൽ തെരഞ്ഞെടുക്കും ബിജെപി കേന്ദ്രനിരീക്ഷകരായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ നരേന്ദ്രസിങ് തോമറും ബിജെപി വൈസ് പ്രസിഡന്റ് അവിനാഷ് റായ് ഖന്നയും യോഗത്തിൽ പങ്കെടുക്കും

മരിച്ചവരിൽ രണ്ടുപേരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് സുരക്ഷാസേന അറിയിച്ചു

പി മാരുടെ പ്രതിനിധി സംഘം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മു കശ്മീരിൽ എത്തി

ഡി എം

കഴിഞ്ഞ ദിവസം ഡി

കേസ് വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറെയും മാറ്റും കേസ് നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ പ്രോസിക്യൂട്ടറെ മാറ്റാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തിരുന്നു

ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തായി പോലീസ് പറഞ്ഞു അട്ടപ്പാടി മേഖലയിലും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്

ഇതിനായി ബ്രസീൽ മാതൃകയിൽ മുലപ്പാൽ ശേഖരണ ബാങ്ക് രൂപീകരിക്കും

ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടൂത്തു തിരിച്ചെത്തിയ കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൌബെ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത് ് ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും ശിശുക്കൾക്ക് മുലപ്പാൽ ലഭ്യമാക്കുന്നതിനും എല്ലാവർക്കും താങ്ങാനാകുന്ന വിലയ്ക്ക് മരുന്ന് ഉറപ്പാക്കുന്നതിനും കൂട്ടായി പരിശ്രമിക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു പ്രാഥമിക ആരോഗ്യൂ പ്രിരക്ഷ ശിശുമരണനിരക്ക് കുറയ്ക്കൽ പ്രതിരോധ കുത്തിവയ്പ്പ് സാർപ്പിത്രിക ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ മുഖ്യ ചർച്ചർവിഷയമായതായും കേന്ദ്രമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതിതീവ്ര ചുഴലിക്കാറ്റായി തുടരുന്ന ക്യാർ നാളെയോടെ ശക്തികുറഞ്ഞ് തീവ്രചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകൂപ്പ് അറിയിച്ചു

കേരള ലക്ഷദ്വീപ് തീരത്തിനിടയിൽ കടൽ വരും മണിക്കൂറുകളിൽ പ്രക്ഷുബ്പമായേക്കും മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്തും കന്യാകുമാരി മാലദ്വീപ് ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഡിസംബറിൽ തെരഞ്ഞെടുപ്പു ന്ട്രത്ത്ണമെന്ന ജോൺസന്റെ നിർദേശത്തെ എതിർത്തിരുന്ന ലേബർപാർട്ടി നേത്രാവ് ജെറമി കോർബും നിലപാട് മാറ്റിയിരുന്നു

ചെന്നൈയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

റഷ്യൻ താരത്തെ പ്രാജ്ജയ്പ്പെടുത്തിയാണ് ഇന്ത്യൻ താരം സെമിയിലെത്തിയത്

പ്രധാന സ്ഥാനാർത്ഥികളായ സജിത്ത് പ്രേമദാസാ ഗോട്ടബയാ രാജ്പക്സേ എന്നിവർ തമിഴ് പാർട്ടികൾ മുന്നോട്ടുവെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു